തീർത്ഥാടനത്തിരക്ക് ചിത്തിര ആട്ട വിശേഷപൂജകൾ പൂർത്തിയാക്കി നട ഇന്ന് അടയ്ക്കും

ഇന്ത്യയടക്കം എട്ട് രാജ്യങ്ങളെ അമേരിക്ക ഒഴിവാക്കി

ഇന്ന് തുടക്കം

കൂടുതൽ വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്നും ആകാശവാണി പ്രതിനിധി ബിജി വർഗീസ്

സംസ്ഥാ നത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്നലെ തന്നെ ആഘോഷങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് തമിഴ്നാട്ടിലാണ് പ്രധാത്യമായും ആഘോഷങ്ങൾ നടക്കുന്നത്

അതിരാവിലെയുള്ള കുളിയും ക്ഷേത്ര സന്ദർശനവും പ്രത്യേക്ക് പൂജകളുമാണ് ഈ ദിനം തമിഴ്നാട്ടുകാർ ആഘോഷിക്കുന്നത് മധുർവിതരണവും ഇതോടൊപ്പം നടക്കും

ന്യൂഡെൽഹിയിൽ ഒരു ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

മെഥനോൾ എഥനോൾ വൈദ്യുതി തുടങ്ങിയവ വാഹനങ്ങളിൽ ഉപയോഗിക്കുന്നത് പട്രോളിയം ഇറക്കുമതി കുറക്കാൻ സഹായിക്കുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു

പ്രത്യേക പൂജകളിലും പ്രധാന മന്ത്രി പങ്കെടുക്കും കേദാർപുരി നിർമ്മാണ സ്ഥലവും അദ്ദേഹം സന്ദർശിക്കും പ്രധാനന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് കനത്ത സുരക്ഷയാണ് ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത്

അരിഹന്ത് വിജയകരമായി പരീക്ഷണ്ണ ഓട്ട് പൂർത്തിയാക്കിയതായി കേന്ദ്ര പ്രതി രോധ മന്ത്രാലയം അറിയിച്ചു് ഇതോടെ കര വ്യോമ കടൽ മാർഗം ആണവ മിസൈൽ വിക്ഷേപിക്കാൻ കരുത്തുള്ള രാജൃങ്ങളുടെ പട്ടിക യിൽ ഇന്ത്യയും ഇടം പിടിച്ചു

എസ് റഷ്യ ഫ്രാൻസ് ചൈന യുകെ എന്നിവയാണ് മറ്റു രാജ്യങ്ങൾ ഇന്ത്യൻ പ്രതിരോധ മേഖല പ്രധാന നാഴികക്കല്ലാണ് അരിഹന്തിലൂടെ സ്വന്തമാക്കിയിരിക്കുന്നതെന്ന് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് പറഞ്ഞു ചരിത്രത്തിൽ എന്നും ഓർമിക്കപ്പെടുന്ന സംഭവമാണ് ഇതെന്നും അരിഹന്തിനു പിന്നിൽ പ്രവർത്തിച്ചവരെ അഭിനന്ദിക്കുന്ന തായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്വിറ്ററിൽ കുറിച്ചു രാജ്യരക്ഷാ മന്ത്രി നിർമല സീതാരാമൻ ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിങ് തുടങ്ങിയവരും നാവികസേനയെ അഭിനന്ദനം അറിയിച്ചു പ്രധാനമന്ത്രി തലപ്പത്തുള്ള ന്യൂക്ലിയർ കമാൻഡ് അതോറിറ്റിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലായിരുന്നു അരിഹന്തിന്റെ നിർമ്മാണം

ശത്രുരാജ്യത്തിന്റെ തീരമേഖല യിലേയ്ക്ക് ആരും അറിയാതെ കടന്നു ചെല്ലാനും ബാലിസ്റ്റിക് മിസൈലുകൾ പ്രയോഗിക്കാനും അരിഹന്തിനു ശേഷിയുണ്ട്

കേന്ദ്രകായിക മന്ത്രി രാജ്യവർദ്ധൻ റാത്തോഡും ദക്ഷിണകൊറിയ മന്ത്രി ജോൺഹവാനും തമ്മിലാണ് ധാരണാപത്രത്തിൽ ഒപ്പുവച്ചത്

സൈനിക നീക്കത്തിനിടെ രക്ഷപ്പെ ടാൻ ശ്രമിച്ചവരാണ് മരിച്ചതെന്ന് ഡി ജി

മൽക്കൻഗിരി ജില്ലയിലെ കുർമാനൂർ സന്യാസിഗുഡ പാപ്പൂലൂർ തുട ങ്ങിയ മേഖയിൽ നിന്ന് വൻ ആയുധശേഖരവും പിടിച്ചെടുത്തിട്ടുണ്ട് മൂന്ന് ഗ്രനേഡുകൾ രണ്ട് എഫ് എൽ

മാവോയിസ്റ്റുകളെ വധിച്ച സൈനികർക്ക് ഒഡീഷ ഗവൺമെന്റ് പാരിതോഷികവും പ്രഖ്യാപിച്ചി ട്ടുണ്ട്

മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഉൾപ്പടെ വിവിധ നേതാക്കൾ പത്രിക സമർപ്പിച്ചിട്ടുണ്ട്

ഉപരാഷ്ട്രപതി വെങ്കയ്യനായിഡുവിന്റെ മലായി സന്ദർശന വേളയിലാണ് ധാരണാപത്രത്തിൽ ഒപ്പുവച്ചതെന്ന് വിദേശകാര്യ സെക്രട്ടറി റ്റി

സുനിൽകു മാർ പറഞ്ഞു

തോമസ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി കാക്കനാട് നിർമ്മാണം പൂർത്തിയാക്കിയ ഭൂജല വകുപ്പിന്റെ പുതിയ ഓഫീസ് സമുച്ചയം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു

എറണാകുളം ജില്ലയിൽ ഏഴിക്ക രയിൽ നിർമ്മിക്കുന്ന പുത്തൻതോട് കുഴുവേലിതോട് എന്നിവയുടെ പുറം ബണ്ട് നിർമ്മാണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി

വിപണിയിൽ എണ്ണയ്ക്കുണ്ടായ ക്ഷാമം കണക്കിലെ ടുത്താണ് തീരുമാനമെന്ന് പോംപിയോ പറഞ്ഞു

ലക്നൌവിൽ പുതുതായി നിർമ്മിച്ച ഏകന സ്റ്റേഡിയത്തിലാണ് മത്സരം നടത്തുന്നത് ആദ്യ മത്സരം ജയിച്ച ഇന്ത്യ മുന്നിലാണ്

പതിനൊന്നാം തീയതി വരെ ടൂർണമെന്റ് നീണ്ടു നിൽക്കും ഇൻഡ്യടെ പ്രതിനിധീകരിച്ച് കിഡംബി ശ്രീകാന്ത് പി

ഈ വർഷത്തെ ആദ്യ ചാമ്പ്യൻ പട്ടം തേടിയാണ് സിന്ധു ടൂർണമെന്റിൽ എത്തിയിരിക്കുന്നത്

ഇത് ലീഗിലെ ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ ത്തോൽവിയാണ്